കേന്ദ്ര സർക്കാരും കർഷ്ടക് സംഘടനാ നേതാക്കളും തമ്മിലുള്ള എട്ടാംഘട്ട ചർച്ച ഇന്ന്

ഐഎസ്എല്ലിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷയ്ക്ക് ജയം ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് പോരാട്ടം

സൂരിനാം പ്രസിഡന്റ് ചന്ദ്രികപെർസാദ് സനോഖി മുഖ്യാതിഥി ആയിരിക്കും രാഷ്ട്രപപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും

ഇടനാഴി ചരക്കു ഗതാഗതത്തിൽ നിർണായക മാറ്റും കൊണ്ടുവരുമെന്ന് ശ്രീ മോദി പറഞ്ഞു

റേഡ്ടർ ് മഹേന്ദർഗഡ് അജ്മീർ സീക്കർ എന്നീ വ്യവസായ മേഖ്ലികൾക്ക് ഇടനാഴി ഇന്ധനം എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻഗണ്ഡ് വരെ സർവീസ് നടത്തുന്ന ഒന്നരകിലോമീറ്റർ നീളമുള്ളൂ ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബ്ബിൾ സ്റ്റാക്ക് ലോങ്ങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമിന്റി ് വീഡിയോ കോൺഫെറൻസിങ്ങിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു

ഡ്രൈറണ്ണിന് വേണ്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി വിശദാശങ്ങളുമായി ദേവിപ്രിയ

കുത്തിവെപ്പൊഴികെ വാക്സിൻ വിതരണത്തിലെ മറ്റെല്ലാ നടപടികളും ഡ്രൈറണ്ണിലുൾപ്പെടുത്തിയിട്ടുണ്ട്

സംസ്ഥാന ജില്ലാ ബ്ലോക്ക് ആശുപത്രി് തലങ്ങളിലെ ഓഫീസർമാരും ഡ്രൈറണ്ണിൽ പങ്കാളികളാകും ഒരു ലക്ഷത്തി എഴുപതിനായിരം വാക്സിനേറ്റർമാരെയും മൂന്ന് ലക്ഷത്തിലധികം വരുന്ന വാക്സിനേഷൻ ടീമംഗങ്ങളെയും സജ്ജീകരിച്ചിട്ടുണ്ട് ഡ്രൈറൺ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

ചൈന്നൈയിലടക്കം പിപിധ ഡ്രൈറൺ കേന്ദ്രങ്ങളിലെ ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തും സംസ്ഥാന ആരോഗൃമന്ത്രിമാരെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞദിവസം അദ്ദേഹം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ്രൈറൺ തയ്യാറെടുപ്പ് അവലോകനം ചെയ്തിരുന്നു

മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി സ്വകാര്യ ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടത്തുന്നത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും സഭ ചേരുക

കഴിഞ്ഞ തിങ്കളാഴ്ചയും ചർച്ച നടന്നിരുന്നു എന്നാൽ കാർഷിക നിയമത്തിലെ പുതിയ മാറ്റങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിൽ നിൽക്കുന്നതിനാൽ ചർച്ച ഫലപ്രദമായില്ല്പ്പെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പ്രർച്ചുകളിലൂടെ പരിഹരിക്കാൻ സന്നദ്ധരാണ് എന്നാണ് ക്ക്രേന്ദ്ര ്സർക്കാർ നിലപാട്

പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ വിജയിയായ ക്ഷണിക്കുന്നതിനായുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്നപ്പോഴാണ് സംഘർഷമുണ്ടായത് അധികാരകൈമാറ്റം ജനാധിപത്യരീതിയിലാകണം നടക്കേണ്ടതെന്ന് സംഭവത്തെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്തമാക്കി സംഘര്ഷത്തിൽ നാലുപേർ മരിക്കുകയും നിരവധിപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു

ദേശീയ പുനരുദ്ധാരണ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശുശീൽ ഗൃാവാലിയാണ് നേപ്പാളിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് നേപ്പാൾ ഡെപ്യൂട്ടി ചീഫ് ആയ നങ്ക്യ ഖംപയ്ക്ക് കൈമാറിയത്

വാക്സിൻ സ്വമേധയാ ജനങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്ന് ഇതിൽ പറയുന്നു സ്വയം പ്രതിരോധത്തിനും രോഗം പടരുന്നത് തടയാനും കോവിഡ് വാക്സിൻ സഹായകരമാകും

വാക്സിനേഷൻ സൈറ്റിൽ മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാനാണിത്

കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംസ്ഥാനങ്ങളിലെ കോവിഡ് നിരക്കിൽ വർദ്ധനയുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്

വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അടുത്ത മാസം അവാസനത്തോടെ വാക്സിൻ വിതരണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സൂഗാ വ്യക്തമാക്കി

ഫെബ്രുവരി മാസം അവസാനത്തോട്ടെ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ നടപടി ആര്യ്ഭിക്കാൻ കഴിയുമെന്ന് ജപ്പാൻ സർക്കാർ വിലയിരുത്തുന്നു

ജനങ്ങളുടെ മൌലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഹനിക്കുന്ന തരത്തിലാണ് ഹോങ്കോങ്ങിലെ വ്യാപക അറസ്റ്റ്

ഇന്നത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദിനെ നേരിടും

ഇന്ത്യക്കായി മുഹമ്മദ് സിറാജും നവദീപ് സൈനിയും ഓരോപ്പിക്കറ്റ് വീതം വീഴ്ത്തി